ത കൺസ്യൂമർ ഫെഡ് ഓണച്ചന്തകൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ രാവിലെ ഉദ്ഘാടനം ചെയ്യും ത സംസ്ഥാന നിയമസഭയുടെ ഏകദിന സമ്മേളനം നാളെ

എം നേതൃത്വത്തിൽ ഇന്ന് വീടുകളിൽ സത്യഗ്രഹം ത സ്വർണ്ണക്കള്ളക്കടത്ത് ലൈഫ് മിഷൻ അഴിമതി വിഷയങ്ങളിൽ ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ ഇന്ന് ഉപവസിക്കും

രോഗം ഭേദമായവർക്ക് നിർബന്ധിത ക്വാറന്റൈൻ ഒഴിവാക്കി

ക്വാറന്റൈനിലാകണമെന്ന വ്യാപാര ആവശ്യങ്ങൾക്കും അത്യാവശ്യ ഹ്രസ്വ സന്ദർശനത്തിന് എത്തുന്നവർക്കും ക്വാറന്റൈൻ നിർബന്ധമല്ലെങ്കിലും ഏഴ് ദിവസത്തിനകം അവർ മടങ്ങിപ്പോവണമെന്ന് നിർദ്ദേശമുണ്ട്

വിവരങ്ങളുമായി അനുഷ ആത്മപ്രകാശ്

നൂറിൽ താഴെ രോഗം സ്ഥിരീകരിച്ച മറ്റു ജില്ലകളിലും സമ്പർക്ക രോഗബാധിതരാണ് ഏറിയ പങ്കും

ന്യൂസ് ഡസ്ക് ആകാശവാണി രും കോവിഡ് രോഗികൾ കൂടുന്ന സാഹചര്യത്തിൽ മലപ്പുറം ജില്ലയിലെ ഞായർ ലോക്ഡൌൺ ഇന്നും തുടരും വിവാഹം മരണം മെഡിക്കൽ എമർജൻസി പെട്രോൾ പമ്പുകൾ എന്നിവയ്ക്ക് ലോക്ഡൌൺ ബാധകമല്ല

രുമ കോവിഡ് അതീവ ജാഗ്രതാ മേഖലയായി പ്രഖ്യാപിച്ച കോഴിക്കോട് വെള്ളയിൽ ഭാഗത്ത് കൂടുതൽ രോഗപരിശോധന നടത്താൻ ജില്ലാതല അവലോകന യോഗത്തിൽ തീരുമാനമായി കോവിഡ് വ്യാപനത്തെത്തുടർന്ന് വെള്ളയിൽ ഫിഷിംഗ് ഹാർബറും തീരദേശ റോഡുകളും അടച്ചു രമേ ആലപ്പുഴ വലിയഴീക്കൽ ഫിഷ്ലാന്റിംഗ് സെന്ററിൽ നിന്ന് മീൻ പിടിക്കാൻ പോകുന്നതും വിപണനം നടത്തുന്നതും ചൊവ്വാഴ്ച അർദ്ധരാത്രി വരെ ജില്ലാ കലക്ടർ നിരോധിച്ചു ഇതിനോട് ചേർന്ന ആറാട്ടുപുഴയിലെ ഏതാനും വാർഡുകളിൽ കോവിഡ് കേസുകൾ കൂടുതലായി റിപ്പോർട്ട് ചെയ്യുന്ന സാഹചര്യത്തിലാണ് നടപടി

രുമ ഇന്ത്യയിലെയും വിദേശത്തെയും കോവിഡ് വാക്സിൻ വികസനവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ നൽകാൻ ഇന്ത്യൻ മെഡിക്കൽ ഗവേഷണ കൌൺസിൽ വാക്സിൻ പോർട്ടൽ തയ്യാറാക്കും ഇംഗ്ലീഷിന് പുറമെ പ്രാദേശിക ഭാഷകളിലും വാക്സിൻ സംബന്ധിച്ച വിശദാംശങ്ങൾ ജനങ്ങൾക്ക് ലഭ്യമാക്കാനാണ് ഉദ്ദേശിക്കുന്നതെന്ന് ഐ

ആറിലെ സാംക്രമിക രോഗ വിഭാഗം മേധാവി ഡോ സമീരൻ പാണ്ഡ അറിയിച്ചു രുര കൺസ്യൂമർ ഫെഡ് ഓണച്ചന്തകൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ രാവിലെ ഓൺലൈനായി ഉദ്ഘാടനം ചെയ്യും

രുഭ റെയിൽവേ സാമ്പത്തിക പ്രതിസന്ധിയെ തുടർന്ന് ജീവനക്കാരുടെ ശമ്പളവും പെൻഷനും പിടിച്ചു വക്കാൻ പോകുന്നുവെന്ന തരത്തിൽ ചില സാമൂഹ്യ മാധ്യമങ്ങളിൽ വന്ന പ്രചാരണങ്ങൾ അടിസ്ഥാന രഹിതമാണെന്ന് റെയിൽവേ മന്ത്രാലയം വ്യക്തമാക്കി ഗവൺമെന്റ് തലത്തിൽ ഇത്തരമൊരു ആലോചനയോ നീക്കമോ ചർച്ചയോ ഉണ്ടായിട്ടില്ലെന്നും മന്ത്രാലയം അറിയിച്ചു

നാലാഴ്ച മുമ്പാണ് കണ്ണട ലേലത്തിന് വെച്ചത്

ഗവൺമെന്റിനെതിരായ യു ഡി എഫിന്റെ അവിശ്വാസ പ്രമേയവും സഭ ചർച്ച ചെയ്യും തിരുവനന്തപുരം വിമാനത്താവളത്തിന്റെ സ്വകാര്യവൽക്കരണത്തിന് എതിരായ പ്രമേയം സഭ പാസ്സാക്കും

കോവിഡ് പ്രോട്ടോകോൾ പാലിച്ചായിരിക്കും സഭാ സമ്മേളനം രുമ നിയമസഭയുടെ ഇരുപതാം സമ്മേളനത്തിന്റെ ഭാഗമായി നാളെ നിയമസഭാ മന്ദിരത്തിൽ നിയമസഭാംഗങ്ങൾക്കും ജീവനക്കാർക്കും കോവിഡ് ആന്റിജൻ ടെസ്റ്റ് നടത്തും റിപ്പോർട്ടിംഗിനെത്തുന്ന മാധ്യമ പ്രവർത്തകർക്കും ഈ സൌകര്യം ലഭ്യമാണ് കായംകുളം കണ്ടല്ലൂർ കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ പുതിയ ബ്ലോക്ക് മന്ത്രി കെ കെ ശൈലജ ഉദ്ഘാടനം ചെയ്തു വീഡിയോ കോൺഫറൻസ് വഴിയായിരുന്നു ഉദ്ഘാടന ചടങ്ങ് രേര ഇടുക്കിയിലെ മുരിക്കാശ്ശേരി ബസ് സ്റ്റാന്റ് ഷോപ്പിംഗ് കോംപ്ലക് എന്നിവ വീഡിയോ കോൺഫറൻസിംഗിലൂടെ മന്ത്രി എ സി മൊയ്തീൻ ഉദ്ഘാടനം ചെയ്തു മന്ത്രി എം എം മണി അധ്യക്ഷനായിരുന്നു

എമ്മിന്റെ നേതൃത്വത്തിൽ വീടുകൾ കേന്ദ്രീകരിച്ച് ഇന്ന് വൈകിട്ട് പാർട്ടി പ്രവർത്തകർ സത്യഗ്രഹം സംഘടിപ്പിക്കും കോവിഡ് കാലത്തും കേന്ദ്രം ജനദ്രോഹ നയങ്ങൾ തുടരുകയാണെന്നാരോപിച്ചാണ് നേതാക്കളും പാർട്ടി അംഗങ്ങളും വീടുകളിൽ സത്യഗ്രഹമിരിക്കുന്നത് തിരുവനന്തപുരം വിമാനത്താവളത്തിന്റെ സ്വകാര്യവൽക്കരണത്തിനെതിരായ പ്രതിഷേധവും സത്യഗ്രഹത്തിൽ ഉന്നയിക്കും

രുര സ്വർണ്ണ കള്ളക്കടത്ത് ലൈഫ് മിഷൻ അഴിമതി എന്നീ വിഷയങ്ങളിൽ ധാർമ്മിക ഉത്തരവാദിത്വം ഏറ്റെടുത്ത് മുഖ്യമന്ത്രി രാജിവെയ്ക്കണമെന്ന് ആവശ്യപ്പെട്ട് ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ ഇന്ന് ഉപവാസ സമരം നടത്തും

ഈ മാസം ആദ്യം മുതൽ ബി ജെ പി ആരംഭിച്ച റിലെ ഉപവാസ സനരങ്ങളുടെ അവസാനത്തേതാണ് ഇന്നത്തേത് രുമ തിരുവനന്തപുരം വിമാനത്താവളം സ്വകാര്യ മേഖലയ്ക്ക് കൈമാറുന്നത് സംബന്ധിച്ച അനുകൂല നിലപാടിൽ ഉറച്ച് നിൽക്കുന്നതായി ഡോ ശശി തരൂർ എം

സ്വകാര്യ വൽക്കരണം വഴി വിമാനത്താവള വികസനം കൂടുതൽ സാധ്യമാകുമെന്നും കൂടുതൽ നിക്ഷേപകരെ ആകർഷിക്കാനാകുമെന്നും ഡോ തരൂർ ട്വീറ്റ് ചെയ്തു രേര മഹാത്മാഗാന്ധി സർവ്വകലാശാല ബിരുദ പരീക്ഷയിൽ ഒന്നാം റാങ്ക് നേടിയ അതിഥി തൊഴിലാളി കുടുംബാംഗമായ പായൽ കുമാരിയെ മുഖ്യമന്ത്രി പിണറായി വിജയൻ അഭിനന്ദനമറിയിച്ചു

സിവിൽ സർവ്വീസ് സ്വപ്നത്തോടെയാണ് പായലിന്റെ തുടർ പഠനം ദേദ ഇടുക്കി പെട്ടിമുടി ദുരന്തത്തിൽ കാണാതായവർക്കായി നടത്തിയ തെരച്ചിലിൽ ഇന്നലെ ആരെയും കണ്ടെത്തിയില്ല ഭൂതക്കുഴി മേഖലയിൽ കടുവയെ കണ്ടെത്തിയത് തെരച്ചിൽ സംഘത്തിൽ ആശങ്ക പരത്തി വനംവകുപ്പ് ഉദ്യോഗസ്ഥരുമായി കൂടിയാലോചിച്ച ശേഷമായിരിക്കും മേഖലയിൽ ഇന്നത്തെ തെരച്ചിൽ മൂന്നാർ ഇന്ന് പ്രത്യേക യോഗം ചേർന്ന് ദുരന്തത്തിന്റെ തുടർ സാഹചര്യം വിലയിരുത്തും രുമ ഇടുക്കി മറയൂർ പാലപ്പെട്ടിക്കുടി ആദിവാസി കോളനിയിലെ ചന്ദ്രികയെ വെടിവെച്ച് കൊന്ന കേസിൽ മൂന്നുപേരെ പൊലീസ് അറസ്റ്റ് ചെയ്തു അതേ കോളനിയിലെ താമസിക്കാരായ കാളിയപ്പൻ മണികണ്ഠൻ മാധവൻ എന്നിവരാണ് പ്രതികൾ രേര ഇന്നലെ കണ്ണൂരിൽ അന്തരിച്ച മുതിർന്ന പത്രപ്രവർത്തകൻ ഐസക് പിലാത്തറയുടെ മൃതദേഹം രാവിലെ പിലാത്തറ ഇടവക സെമിത്തേരിയിൽ സംസ്കരിക്കും